ശബ്ദവോട്ടോടെയാണ് ഒറ്റവരി വിശ്വാസപ്ര മേയം പാസായത് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല ഇതേത്തുടർന്നാണ് സ്പീക്കർ കെ ആർ രമേഷ്കുമാർ ബി ജെ പി ഗവൺമെന്റ് വിശ്വാസ് വോട്ട് നേടിയതായി അറിയിച്ചത് ഇതോടൊപ്പം ധനബില്ലും സഭ പാസ്സാക്കി രാഷ്ട്രീയ പകപോക്കലിനോ പ്രതികാര നടപടികൾക്കോ ബി ജെ പി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രമേയം അവ തരിപ്പിച്ച യെദ്യൂരപ്പ വൃക്തമാക്കി എന്നാൽ വിമതരെ ബി ജെ പി തെരുവിലാക്കിയെന്ന് മുൻമുഖ്യമന്ത്രി എച്ച് ഡി കുമാ രസ്വാമി സഭയിൽ പറഞ്ഞു

ഒരു കക്ഷിരഹിതന്റെ പിന്തുണയും ബി ജെ പിയ്ക്കുണ്ട്

അതിനിടെ സ്പീക്കർ അയോഗൃരാ ക്കിയ അഞ്ച് എം എൽ എ മാർ മുംബൈയിൽ നിന്ന് ബെങ്കളൂരുവിൽ തിരിച്ചെത്തി

ഡാമുകളുടെ സുരക്ഷാസംവിധാനം ഉറപ്പുവ രുത്തുന്നതിന് നിരീക്ഷണവും പരിശോധനയും അറ്റകുറ്റപ്പ ണികളും വൃവസ്ഥ ചെയ്യുന്ന ബിൽ ജലശക്തിമന്ത്രി ഗജേ ന്ദ്രസിംഗ് ഷെക്കാവത്താണ് അവതരിപ്പിച്ചത് ബിൽ അവത രണത്തെ പ്രതിപക്ഷത്തെ മനീഷ്തിവാരി ശശിതരൂർ എൻ കെ പ്രേമചന്ദ്രൻ സൌഗതാറോയ് തുടങ്ങിയ അംഗങ്ങൾ എതിർത്തു ഡാം സുരക്ഷയിലെ താത്പര്യക്കാർ ആരെ ന്നത് കരട് നിയമത്തിൽ നിർവഹിച്ചിട്ടില്ലെന്ന് ശശിതരൂർ കുറ്റ പ്പെടുത്തി സംസ്ഥാനങ്ങൾക്കുമേൽ നിയമം അടിച്ചേൽപ്പിക്കു കയാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശ്യമെന്ന് സഭയിലെ കോൺഗ്രസ് അധിർരഞ് ജൻ നേതാവ് ചൌനരി പറഞ്ഞു എന്നാൽ ഡാമുകളുടെ പ്രവർത്തനങ്ങളുടെയും അറ്റകുറ്റപ്പണികളുടെയും നിയന്ത്രണം കേന്ദ്രം ഏറ്റെടുക്കു കയണെന്ന ആരോപണം ജലശക്തിമന്ത്രി നിഷേധിച്ചു

സഭ ഇന്ന് സമ്മേളിച്ചയുടനെ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് അസംഖാനെ സ്പീക്കർ അറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച അസംഖാനെതിരെ രാഷ്ട്രീയ ഭേദമന്യെ അംഗങ്ങൾ രംഗത്തുവന്നിരുന്നു

മനഃപ്പൂർവും ഇത്തരം പ്രസ്താവന നടത്താൻ തനിക്കൊരിക്കലുമാവില്ലെന്നും തന്റെ വാക്കുകൾ ഇപ്പോഴും ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു വെന്നും അസംഖാൻ പറഞ്ഞു ബി ജെ പി എം പി രമാദേവി വ്യാഴാഴ്ച സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുന്നതിനിടെയാണ് അസം ഖാൻ വിവാദപരാമർശം നടത്തിയത് അസംഖാന്റെ മാപ്പ പേക്ഷ കേട്ടില്ലെന്ന് അറിയിച്ച രമാദേവി അത് ആവർത്തി ക്കാൻ സഭയിൽ ആവശ്യപ്പെട്ടു

ഉന്നാവ് പീഡനക്കേസിലെ പെൺകുട്ടിയും ബന്ധുക്കളും അപകടത്തിൽപ്പെട്ട സംഭവ ത്തോടു ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം സംഭവ ത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു

എളമരം കരീം ബിനോയ് വിശ്വം എന്നിവരാണ് നോട്ടീസ് നൽകിയത്

ഇന്നലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ എസ് ജയ്പാൽ റെഡ്ഡിയുടെ സംസ്കാരം ഉച്ചക്ക് ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തീരത്ത് പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും

സംസ്കാര ചട ങ്ങുകളിൽ കോൺഗ്രസ് പ്രതിനിധിയായി ഗുലാംനബി ആസാദ് പങ്കെടുക്കും

നേതൃ ത്വത്തെക്കുറിച്ച് അവൃക്തത കോൺഗ്രസിന് ക്ഷതമേൽപ്പി ക്കുന്നുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലെങ്കിൽ യുവനേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് തരൂർ അഭിപ്രായപ്പെ ട്ടു അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയ ങ്കാഗാന്ധി മത്സരിക്കാൻ മുന്നോട്ടുവരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ യിൽ ദുഃഖമുണ്ടെന്നും ശശിതരൂർ അറിയിച്ചു അധ്യക്ഷസ്ഥാ നത്തേയ്ക്ക് താനില്ലെന്നും പ്രവർത്തകസമിതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ശശിതരൂർ അറിയിച്ചു

പുതിയ അധ്യക്ഷനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഇത് ചർച്ച ചെയ്യാൻ ഉടൻ പ്രവർത്തക സമിതി ചേരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയി ച്ചു രാഹുൽഗാന്ധി തുടരണമെന്നും പ്രിയങ്കാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്നും ആഗ്രഹിക്കുന്നവരു ണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു പാർട്ടിയുടെ തെരഞ്ഞെ ടുപ്പ് രീതി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി യുടെ ഭീഷണി കോൺഗ്രസ് ശക്തമായി നേരിടുമെന്നും വേണുഗോപാൽ അറിയിച്ചു

ജില്ലയിലെ ഷാപ്പൂർ സൌജിയാൻ സെക്ടറുകളിൽ നിയ ന്ത്രണരേഖയ്ക്കടുത്താണ് പാക്സൈന്യം വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തിയത്

തീരുമാനം സാധാരണ ജനങ്ങൾക്കെതിരാ ണെന്നും സ്ഥകാരൃ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളങ്ങൾ വരെ സ്ഥകാ രൃ വത്ക്കരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു

കാഞ്ഞിരപ്പള്ളി ജന റൽ ആശുപത്രിയിലാണ് റീ പോസ്റ്റുമോർട്ടം നടത്തുന്നത് ക സ്റ്റഡിക്കൊല അന്വേഷിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ചു ജ സ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മിഷനാണ് മൃതദ്ദേഹം പുറത്തെ ടുത്ത് പരിശോധിക്കുന്നത്

ആദ്യപോസ്റ്റുമോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂമോ ണിയ ബാധയാണ് രാജ്കുമാറിന്റെ മരണത്തിന് കാരണമെന്ന് കരുതുന്നില്ലെന്നും സ്കാനിംഗിലൂടെ ന്യൂമോണിയ കണ്ടെ ത്താമെന്നിരിക്കെ രോഗം മൂർച്ഛിച്ച് പ്രതി മരിച്ചിട്ടും ഇത് തിരി ച്ചറിയാനായില്ല എന്നത് വിശ്വസിക്കാനാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു റീപോസ്റ്റുമോർട്ടത്തിലൂടെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നാരാ യണക്കുറുപ്പ് വ്യക്തമാക്കി

പുലർച്ചെ വാഹന പരിശോധനയ്ക്കിടെ നാല് പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവസ്ഥലത്തുനിന്ന് സർണ്ണവും പണവുമായി രക്ഷപ്പെട്ട മറ്റൊരുപ്രതി നിധിൻ ജാദവിനെ പിന്നീട് സേലത്തു നിന്നു തന്നെ പൊലീസ് പിടികൂടി ഇയാളിൽ നിന്ന് കവർച്ച ചെയ്ത സ്വർണവും പണവും കണ്ടെടുത്തു

സേലം പൊലീസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന അഞ്ച് പ്രതികളെയും കൊണ്ടുവരാനായി പത്തനംതിട്ട പൊലീസ് സേലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്നലെ വൈകീട്ടാണ് ജീവ നക്കാരനെ ബന്ദിയാക്കി ജല്ലറിയിൽ കവർച്ച നടത്തിയത്

ഹൈക്കോടതിയിൽ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ടെന്ന കാരണം മുൻനിർത്തിയാണ് രക്തസാമ്പിൾ നൽകാതിരുന്ന ത് ജാമ്യവ്യവസ്ഥയനുസരിച്ച് ഓഷിവാര പൊലീസ് സ്റ്റേഷ നിൽ ബിനോയ് രാവിലെ ഹാജരായി അതിനിടെ പീഡനക്കേസിലെ എഫ് ഐ ആർ റദ്ദാക്ക ണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്ന് ബോംബെ ഹൈക്കോടതി പരിഗണിക്കും രക്തസാമ്പിൾ നൽകിയില്ലെ ങ്കിൽ ബിനോയിയുടെ ജാമ്യം റദ്ദാക്കാണമെന്നാവശ്യപ്പെട്ട് പീഡനത്തിനിര്യായ ബിഹാർ സ്വദേശിയായ യുവതിയുടെ കുടുംബവും കോടതിയെ സമീപിച്ചേക്കും

സമരത്തെ തുടർന്ന് രണ്ട് മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

ഡോ പി എ ലളിത സമരം ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കമ്മററി ചെയർമാൻ കൂടിയായ ഡോ

എസ് നാരായണൻ പ്രതിപക്ഷ ഉപനേതാവ് ഡോ എം കെ മുനീർ തുടങ്ങിയവർ ഉപരോധസമരത്തിൽ പങ്കെടുത്തു

മുരളീധരന് ബി ജെ പി ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് നാലിന് തലശ്ശേരിയിൽ സ്വീകരണം നൽകും

ജെ

സംസ്ഥാന സെൽ കോർഡിനേറ്റർ കെ രഞ്ചിത്ത് ഉദ്ഘാടനം ചെയ്തു കെ സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസപാക്യവും തിരു വല്ല ബിഷപ്പ് തോമസ് മാർ കൂറി ലോസും മുഖ്യ മന്ത്രിയു മായി കൂടി ക്കാഴ് ച നടത്തി വൃക്തിപരമായ ആവശ്യങ്ങൾക്കാണ് വന്നതെന്നും ഔദ്യോഗിക് ആവശൃങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്നും ബിഷപ്പ് സൂസപാകൃം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു